ന്നതെന്ന് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന നിയമം ശക്തിപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു ഇടുക്കി ഡാമിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞു

ലെത്തി ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട ഹരജികൾ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി മലയാളത്തിന്റെ ഗസൽ ഗായകൻ ഉമ്പായിക്ക് കലാകേരളത്തിന്റെ

ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് പാർലമെന്റിലാണ് കുടികൊ ള്ളുന്നതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു എം പിമാർ ഏതെ ങ്കിലും പാർട്ടിയുടേയോ മണ്ഡലത്തിന്റെയോ പ്രതിനിധികൾ മാത്രമല്ലെന്നും ഭരണഘടനയുടെ ട്രസ്റ്റിമാരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രത്യാശകളോടും പ്രതീക്ഷകളോടും എം പിമാർക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു

നെജ്മ ഹെപ്ത്തുള്ള ഗുലാം നബി ആസാ ദ് ഹുക്കുംദേവ് നാരായൺ യാദവ് ദിനേശ് ത്രിവേദി ഭർതൃഹരി മഹ്ത്താബ് എന്നിവർക്കാണ് അവാർഡ് സമ്മാനിച്ചത് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനാ യിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ പങ്കെ ടുത്തു

സംസ്ഥാന നിയമ സഭയുടെ വജ്ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം തിരുവനന്തപുരത്ത് ഉദ്ലാടനം ചെയ്ത ശേഷമാണ് അദ്ദേഹം കൊച്ചിയിൽ എത്തുന്നത് ചൊവ്വാഴ്ച രാവിലെ ഒമ്പതിന് ബോൾഗാട്ടി പാലസിൽ ചീഫ് ജസ്റ്റിസിനും മറ്റു ഹൈക്കോടതി ജഡ്ജിമാർക്കും ഒപ്പം പ്രഭാത ഭക്ഷണത്തിന് ശേഷം രാഷ്ട്രപതി തൃശൂരിലേക്ക് പുറപ്പെടും ് ് പട്ടികജാതി പട്ടികവർഗ്ഗുക്കാർക്കെതിരായ അതിക്രമങ്ങൾ തട യുന്ന നിയമം ശക്തിപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാ നിച്ചു

ഇത് മറിക ടന്ന് നിയമം ശക്തിപ്പെടുത്താനാണ് ഭേദഗതി കൊണ്ടുവന്നത്

ചരക്കുസേവന നികുതി നിയമത്തിൽ ഒത്തുതീർക്കാവുന്ന തുകയുടെ പരിധി ഒന്നരകോടി രൂപയായി ഉയർ ത്തു ന്നതുൾപ്പെടെ നിയമ ഭേദഗതികൾക്കും മന്ത്രിസഭ അനുമതി നൽകി

കുഷ്ഠരോഗം വിവാഹമോചനത്തിന് കാരണമാക്കാമെന്ന നിബന്ധന ഒഴിവാക്കാനും മന്ത്രി സഭ തീരുമാനിച്ചു ഇതനുസരിച്ച് വിവിധ മതവിഭാഗങ്ങളുടെ വിവാഹമോ ചന നിയമം ഭേദഗതി ചെയ്യുന്നതിന് വൃക്തിനിയമ ഭേദഗതി ബിൽ പാർല മെന്റിൽ അവതരിപ്പിക്കും കടൽകൊള്ളക്കാർക്ക് വധശിക്ഷയോ ജീവപര്യന്ത തടവോ വൃവസ്ഥ ചെയ്യുന്ന ബില്ലും മന്ത്രിസഭ അംഗീകരിച്ചു

എന്നാൽ ഇക്കാരൃത്തിൽ ജിഎസ്ടി കൌൺസിലാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം രാജ്യ സഭയിൽ വ്യക്തമാക്കി പെട്രോളിയം ഉത്പന്നങ്ങളെ ജിഎസ്ടിക്ക് കിഴിലാ ക്കണമെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ അഭിപ്രായമെന്നും അദ്ദേ ഹം പറഞ്ഞു

വളരെ സാവധാന ത്തിലാണ് ഇപ്പോൾ ജലനിരപ്പുയരുന്നത് വൈദ്യുതോൽ പാദന നിലയമായ മൂലമറ്റം പവർ ഹൌസിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതും ജലനിരപ്പ് ക്രമീകരിച്ചു നിർത്താൻ കാരണമായിട്ടുണ്ട്

വെള്ളം ഒഴുകി പോകുന്ന പ്രദേശത്തുള്ളവർക്ക് വൃക്തമായ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാകും ഡാം തുറക്കുക

് ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യ ക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് കേസിൽ വാദം കേട്ടത്

ചല ച്ചിത്ര സംവിധായകൻ ജോൺ എബ്രഹാമാണ് അബു ഇബ്രാഹിമിന് ഉമ്പായി എന്ന് പേര് നൽകിയത് ഉമ്പായിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ഗസൽ സംഗീതത്തെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കു വഹിച്ച ഗായകനായിരുന്നു ഉമ്പായിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാ രായ എ

സി പ്രസിഡന്റ് എം എം ഹസ്സൻ തുടങ്ങിയവരും ഉമ്പായിയുടെ നിര്യാണത്തിൽ അനുശോ ചിച്ചു

പിടിമുറുക്കി ഇന്ത്യ

ഇന്ത്യക്കുവേണ്ടി അശ്ചിൻ നാലും മുഹമ്മദ് ഷാമി രണ്ടും ഉമേഷ് യാദവും ഇഷാന്ത് ശർമ്മയും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി

കായികരംഗത്തെ മികവിന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഏർപ്പെടുത്തിയ ജി വി രാജ അവാർഡുകൾ തിരുവനന്തപു രത്ത് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അന്തർദ്ദേ ശീയ കായിക താരങ്ങളായ അനിൽഡ തോമസ് രൂപേഷ് കുമാർ എന്നി വർക്ക് ജി വി രാജ അവാർഡുകൾ മുഖ്യമന്ത്രി നൽകി ഒളിമ്പ്യൻ സുരേഷ്ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫുട്ബോൾ പരിശീലകൻ ഗബ്രിയേൽ ജോസഫിന് സമ്മാനിച്ചു

മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പദ്ധതി ചെലവിൽ മികച്ച നേട്ടം സംസ്ഥാന കൈവരിച്ചതായി വിലയിരുത്തി

തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവും വർദ്ധിച്ചു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം തുക വിനിയോഗിക്കാത്ത പദ്ധതികൾ ആവശ്യമുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഖാദി ഉൾപ്പെടെ പരമ്പരാഗത വൃവസായങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഓണം ബക്രീദ് ൃഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാനത്തെ അംഗൻവാടികളെ ഹൈടെക് ആക്കി മാറ്റുമെന്ന് മന്ത്രി കെ

ശൈലജ പറഞ്ഞു വനിതാ ശിശു വികസന വകുപ്പും ആരോഗൃവകുപ്പും സംഘടിപ്പിക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണ ത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരു വ ന ന്ത പു രത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ശിശു മാതൃ മരണ നിരക്കുകൾ കുറയ്ക്കാൻ അംഗൻവാടികളിലൂടെ നടക്കുന്ന ബോധ വത്കരണത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയും സംസ്ഥാന ത്തിന്റെ കിഴക്ക് പടിഞ്ഞാറൻ മേഖലകളിലും മണിക്കൂർ ഇടവിട്ട് സർപ്പീസ് നടത്തുന്ന കെ

സി ചിൽ ബസ് സർവീസുകൾക്ക് തുടക്കമാ യി മന്ത്രി എ

ശശീന്ദ്രൻ തമ്പാനൂർ ബസ് ടെർമിനലിൽ നടന്ന ചട ങ്ങിൽ ബസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു

ത ഗുരു പാദ പൂജ നടത്തിയ സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ ക മ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ഡിഡിഇ സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവരോടാണ് വിശദീകരണം തേടിയത്

പൈതൽമലയിലെ പൊട്ടൻപ്പാവ് ചർച്ചിൽ നിന്ന് ആരംഭിച്ച് പൈതൽമല ടൂറിസ്റ്റ് റിസോർട്ടിൽ അവസാനിക്കുന്ന രീതിയിലാണ് മാരത്തോൺ

നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

തൽക്കാലം ഡാമുകൾ തുറന്നുവിടേണ്ട സാഹചര്യമില്ലെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിച്ചു വെള്ളം തുറന്ന് വിടുന്നത് ഒഴിവാക്കാ നായി ശബരിഗിരി പദ്ധതിയിലെ വൈദ്യുതി ഉല്പാദനം പരമാവധി വർദ്ധി പ്പിച്ചിരിക്കുകയാണെന്നും ബോർഡ് അറിയിച്ചു

കൊല്ലം ചെങ്കോട്ട പാതയിൽ തെൻമല മുതൽ ആര്യങ്കാവ് വരെ വലിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചു കഴുതുരുട്ടി പ്രദേശത്ത് പതിമൂന്ന് കണ്ണറ പാലത്തിന് സമീപം എം

എൽ മേഖലയിലെ പാതയിൽ വിള്ളൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് കൊല്ലം കലക്ടർ അറിയിച്ചു

പാലക്കാട് ജില്ലയിലെ റോഡുകളുടെ തകർച്ച പരിഹരിക്കാത്തിൽ പ്രതിഷേധിച്ച് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലം പട്ടാമ്പി റൂട്ടിലോടുന്ന സ്ഥകാര്യ ബസുകൾ ഇന്ന് പണിമുടക്കും

കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ആദ്യ കാല കുടിയേറ്റ കർഷകനുമായ ആന്റണി ഈപ്പൻ നിര്യാതനായി